എഫ് സീറ്റ് വിഭജന ചർച്ചകൾ നാളെ തുടങ്ങും ആദ്യ ചർച്ച മുസ്ലിം ലീഗുമായി

എസിനെ ചെറുതാക്കാൻ കോടിയേരി ശ്രമിക്കേ ണ്ടെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ

വി പസ ന്തകുമാറിന്റെ മൃതദേഹം സംസ്കരിച്ചു

പി രാജശേഖരൻ അന്തരിച്ചു

ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് നാളെ തുടക്കമാകും രാവിലെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ മുസ്ലിം ലീഗുമായാണ് ആദ്യ ഘട്ട ചർച്ചു രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും

ഡി എഫിൽ ലോക്സഭാസീറ്റുകൾ വെച്ചുമാറുന്നത് സംബ ന്ധിച്ച് ആലോചനയുണ്ടായിട്ടില്ലെന്ന് കൺവീനർ ബെന്നി ബഹനാൻ പറഞ്ഞു മുന്നണിയിൽ സീറ്റ് പിടിച്ചെടുക്കാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്നും അവകാശവാദങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാ നാവുമെന്നും അദ്ദേഹം സ്വകാരൃ ചാനലിനോട് വ്യക്തമാക്കി സൈനികർക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രഗ വൺമെന്റിനാവുന്നില്ലെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു തിരുവനന്തപുരത്ത് എൽ

എഫിന്റെ കേരള സംരക്ഷണ ജാഥയിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം പ്രശ്ന പരിഹാരത്തിന് കേന്ദ്രഗവൺമെന്റിന് താൽപര്യമില്ലെന്നും നയതന്ത്രവിഷയത്തിൽ കേന്ദ്രം പരാജയമാ ണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സിപിഐ തന്നെ മത്സരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കാനംരാജേന്ദ്രൻ പറഞ്ഞു പാർട്ടി സീറ്റുകളിലെ സ്ഥാനാർഥികളെ അടുത്തമാസം ഏഴിന് പ്രഖ്യാപിക്കുമെന്നും സ്ഥാനാർഥി നിർണയത്തിൽ വനിതാപ്രാതി നിധ്യം ഉറപ്പു വരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു കശ്മീർ പ്രശനം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും കാനം കാസർകോട്ട് പറഞ്ഞു കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകേണ്ട സാഹചര്യമാ ണ് നിലനിൽക്കുന്നതെന്ന് കെ

അധിക സീറ്റിനായി മുസ്ലിം ലീഗ് സ മ്മർദ്ദം ചെലുത്തില്ലെന്നും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലീ ഗ് മനസിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറ ഞ്ഞു സ്ത്രീ സ്ഥാനാർഥി ആവശ്യമാണെങ്കിൽ സീറ്റ് നൽകും ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഇതേ സാഹചര്യം ഉണ്ടായാലും പരി ഗണിക്കുമെന്നും കഴിവ് തെളിയിച്ചവരാണ് നേതൃത്വത്തിലേക്ക് വരേ ണ്ടതെന്നും മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു സ്ഥാനാർത്ഥി വിഷയത്തിൽ ആർ

ഐ നേതാവ് കെ കെ രമയുമായി പാർട്ടി ചർച്ചു നട ത്തിയിട്ടില്ലെന്നും വടകരയിൽ പൊതുസ്ഥാനാർത്ഥിയെന്ന ആലോ ചന യു

എഫിൽ ഉണ്ടായിട്ടില്ലെന്നും മുല്ലപ്പള്ളി വൃക്തമാക്കി

എസ് എസിനെ ചെറുതാക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിക്കേണ്ടെന്ന് എൻ

എസ് ജനറൽ സെക്രട്ടരി ജി

സമയം പോലെ പറ്റിക്കൂടി നിന്ന് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും് നേടിയെടുക്കുന്നത് എൻ

എസിന്റെ സംസ്കാരമല്ലെന്നും അദ്ദേഹം പെരുന്നയിൽ പറഞ്ഞു

എസിൽ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നവരു ണ്ട് ശബരിമലയിലെ അടക്കം വിശ്വാസത്തിന്റെയും ആചാരത്തി ന്റെയും കാര്യത്തിൽ ഇടതു ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയങ്ങ ളെ യാണ് എൻ

എസ് എതിർക്കു ന്ന ത് എല്ലാ വരും തങ്ങൾക്കൊപ്പമാണെന്ന് കരുതുന്നവർക്കും പറയുന്നവർക്കും പിന്നീ ടുണ്ടായ അനുഭവങ്ങൾ കോടിയേരി ഓർമിക്കണമെന്നും സുകുമാ രൻനായർ പറഞ്ഞു

എസിലെ നല്ലൊരു പങ്കും സിപി ഐഎമ്മിനെ പിന്തുണക്കുന്നവരാണ് എന്ന കോടിയേരിയുടെ പ്രസ്താവാനയോട് പ്രതികരിക്കുകയായിരുന്നു സുകുമാരൻനായർ

അടുത്ത രണ്ടാഴ്ചത്തെ ടിക്കറ്റുകൾ ഇതിനകം മുഴു വൻ വിറ്റഴിഞ്ഞതായി കേന്ദ്രമന്ത്രി പിയൂഷ്ഗോയൽ ട്വീറ്റ് ചെയ്തു ന്യൂഡൽഹി കരോൾബാഗിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുടമയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു

ഹോട്ടലിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന് അന്വേ ഷണത്തിൽ കണ്ടെത്തിയിരുന്നു

ജമ്മു കശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സി

എഫ് സൈനികൻ വി വി വസന്തകുമാറിന്റെ മൃത ദേഹം വയനാട് തൃക്കൈപ്പറ്റയിലെ കുടുംബശ്മശാനത്തിൽ സംസ്ക രിച്ചു ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ

കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ ഇ പി ജയരാജൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെ ത്തിയിരുന്നു

പി പ്രവർത്തകർ പ്രതിജ്ഞയെടുക്കും ജവാന്റെ ഭൌതികദേഹത്തിനരികിൽ നിന്നെടുത്ത ഫോട്ടോ ആരോ എടുത്ത് സോഷ്യൽ മീഡിയ കൈകാര്യ ചെയ്യുന്ന തന്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്താണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിശദീകരിച്ചു വീരമൃത്യുവരിച്ച ജവാന്റെ അന്ത്യകർമ്മങ്ങളുടെ ലൈവ് സംപ്രേഷണങ്ങൾ പരിശോ ധിച്ചാൽ കാര്യങ്ങൾ വൃക്തമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ജവാന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് അൽഫോൺസ് കണ്ണന്താനം സെൽഫിയെടുത്തായി സിപിഐഎം സംസ്ഥാന സെക്രട്ടരി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചിരുന്നു ആകാശവാണി കോഴിക്കോട് നിലയം മുൻ സ്റ്റേഷൻ ഡയറക്ടർ സി

മികച്ച പ്രക്ഷേപകനായിരുന്ന അദ്ദേഹം ആകാശവാണിയുടെയും ദൂരദർശ ന്റെയും വിവിധ സ്റ്റേഷനുകളിൽ സേ്വനമനുഷ്ഠിച്ചിട്ടുണ്ട്

പി രാജശേഖരൻ കേരള സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങള ടക്കം ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്

ഗാന്ധിയൻ ദർശനങ്ങളിലും സർവോദയ പ്രസ്ഥാന ങ്ങളിലും ചെറുപ്പം മുതൽ സജീവമായിരുന്ന അദ്ദേഹം

അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സി പി രാജശേഖരൻ കോഴിക്കോട് കല്ലായി ഗണപത് ഹൈസ്കൂ ളിലും മാവൂർ റയോൺസ് ഹൈസ്കൂളിലും ജോലി ചെയ്തു

കുറച്ചുകാലം സുപ്രഭാതം മലയാള ദിനപത്രത്തിന്റെ പത്രാധിപരായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്

കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് പൊലീസ് സ്റ്റേഷൻ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫ റൻസ് വഴി ഉദ്ഘാടനം ചെയ്യും

കണ്ണൂർ വയ്നാട് തിരുവനന്ത പുരം ഇടുക്കി പത്തനംതിട്ട കോഴിക്കോട് ജില്ലകളിലായി ഏഴ് സ്റ്റേഷനുകളാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കാലിക്കറ്റ് സർവകലാശാല സൂവർണ ജൂബിലി അക്വാട്ടിക് കോംപ്ലക്സ് ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കോംപ്ലക്സ് പ്രയോജനപ്പെടുത്താം

എൽ ജീവനക്കാർ നാളെ മുതൽ മൂന്നുദിവസം രാജ്യവ്യാപകമായി പണിമുടക്കും

എസ് ഒഴികെ യൂണിയനു കൾ സമരത്തിൽ പങ്കെടുക്കും

ഹയർസെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സെല്ലിന്റെ ആഭി മുഖ്യത്തിൽ വിദ്യാലയ പരിസരങ്ങളിലെ ലഹരിക്കെതിരെ മഞ്ഞ വര ക്യാംപയിൻ സംഘടിപ്പിച്ചു

പരിപാടിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പേരാമ്പ്ര നൊച്ചാട് ഹയർസെ ക്കൻഡറി സ്കൂൾ പരിസരത്ത് നടന്നു

വെള്ളിയാഴ്ച്ച രാത്രിയുണ്ടായ പ്രസംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിബിൻ തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരി ച്ചത് പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകു ട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി വെച്ചൂച്ചിറ പൊലിസ് സ്റ്റേഷനിൽ കീഴടങ്ങി

ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കേസിൽ നേരത്തെ മൂന്ന് യുവാക്കൾ പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായിട്ടുണ്ട്

പ്രതിയുടെ കസ്റ്റഡിയിലിരിക്കുന്നസഹോദരൻ അൽഅ മീനുമായാണ് സംഘം തെരച്ചിൽ നടത്തുന്നത് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവിൽ മികച്ച പ്രൊജക്ടിനുള്ള പുരസ്കാരം കോഴിക്കോട് ജില്ലാ പഞ്ചാ യത്തിന് ലഭിച്ചു സ്പന്ദനം പദ്ധതിക്കാണ് പുരസ്കാരം കുട്ടിക ളിലെ വളർച്ചാ വൈകല്യം മാനസിക ്വളർച്ചക്കുറവ് പഠന പെരു മാറ്റ വൈകല്യങ്ങൾ സംസാര വൈകല്യം തുടങ്ങിയ ആരോഗ്യപ്ര ശ്നങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്പന്ദനം

മുതിർന്ന കാർട്ടൂണിസ്റ്റ് സുകുമാർ യാത്ര ഫ്ളാഗ് ഓഫ് ചെ യ്യും

ജി പി മനോജ് എബ്രഹാം നിർദേശിച്ചു